സാഹചര്യത്തിൽ മ്യാധ്യ്മങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കും ഉച്ചയ്യുന്നതിന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നിർദ്ദേശം പുറപ്പെടുവിപ്പിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണെന്ന് സുപ്രീം കോടതി

ജമ്മു കാശ്മീരിന്റെ വികസനം സാധ്യമാകുമെന്നും കേന്ദ്രമന്തി

കോമൺവെൽത്ത് സ്വർണ മെഡൽ ജേതാവായ ഗുസ്തി താരം ബജ്രംഗ് പൂനിയയുടെ പേര് നിർദ്ദേശിച്ചു

സംസ്ഥാനങ്ങൾ ഈ മാസംഅഞ്ച്മുതൽഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലംഒരുതരത്തിലുമുളള ആക്രമസംഭവങ്ങൾ ഉണ്ടായില്ലെന്നും ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടില്ലെന്നും അദ്ദേഹംഅഭിപ്രായപ്പെട്ടു

മേഖലയുടെ പ്രത്യേക പദവിഎടുത്തു കളഞ്ഞ തിനെ തുടർന്ന് ഭികരവാദികളിൽ നിന്നുംവിഘടനവാദികളിൽ നിന്നും ആക്രമണ നിലനിൽക്കുന്നുണ്ടെന്നുംഅദ്ദേഹംകൂട്ടിച്ചേർത്തു

അനിഷ്ടസംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ആഘോഷങ്ങൾക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ്ഒരുക്കിയിരുന്നത്

പ്രത്യേക പദവി ഇല്ലത്താ്ക്കിയതു മൂലം കാശ്മീരിൽ സമഗ്ര വികസനം സാധ്യമാക്ടുമെന്നും അമിത് ഷാ പറഞ്ഞു

ഒമ്പതു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ജമ്മു കശ്മീർ ഗവർണർസത്യപാൽമാലിക്ഉദ്ഘാടനം ചെയ്യും

രാജസ്ഥാൻമഹാരാഷ്ട്ര ഒഡിഷ പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുളളതുണിത്തരങ്ങളുംഹിമാചൽപ്രദേശ് മധ്യപ്രദേശ്തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുംഗോത്രവർഗ്ഗക്കാരുടെ ആഭരണങ്ങളും മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ്തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പെയിന്റിങ്ങുകളും ഉള്ള പ്രദർശനത്തിനുണ്ടാകും ലഡാക്കിലെ നാടോടി നൃത്തവും ഉത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ഷീജ

ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടുവെന്നും നിയന്ത്രണങ്ങൾ ക്രമേണ നീക്കംചെയ്യുകയാണെന്നും വാദത്തിനിടെ സുപ്രീംകോടതിയെ കേന്ദ്രം അറിയിച്ചു

ബ്രോഡ്ബാന്റ് സേവനങ്ങൾ തുടങ്ങിയവ ക്രമേണ പുനസ്ഥാപിക്കുന്നതായി മാധ്യമറിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതായിചീഫ്ജസ്റ്റിസ് രഞ്ജൻ ജസ്റ്റിസ്എസ്

ബോബ്ഡേ എസ്

എൽ ശർമ്മ സമർപ്പിച്ച ഹർജിയിൽസുപ്രീംകോടതിആശങ്ക പ്രകടിപ്പിച്ചു

ഹർജികളിലെകുറവുകൾ പരിഹരിക്കാൻ കോടതിഅഭിഭാഷകർക്ക് നിർദ്ദേശം നൽകുകയുംവാദത്തിനായിമാറ്റിവയ്ക്കുകയുംചെയ്തു

ബന്ധപ്പെട്ട എല്ലാവരേയും സംസ്ഥാന ഗവൺമെൻ്റുകളെ ഉൾപ്പെടുത്തി ഇതിനായുള്ള ബൃഹത് പദ്ധതി തയ്യാറാക്കുമെന്ന് കേന്ദ്ര മന്ത്രി അറിയിച്ചു

ബ്രസീലിലെസാവോ പോളോയിൽ നടന്ന അഞ്ചാമത് ബ്രിക്സ് മന്ത്രിതലയോഗത്തിലാണ് തീരുമാനം ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനും ഊർജ്ജ സംരക്ഷണത്തിനും ആയി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെക്കുറിച്ച് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ്ജാവദേക്കർ വിശദീകരിച്ചു

ഈ പ്രഖ്യാപിത നയമാണ് ഇന്ത്യ പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പൊക്രാനിൽ സംഘടിപ്പിച്ച അന്തർദേശീയ സ്കൌട്ട് മാസ്റ്റേഴ്സ് മത്സരത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അടൽ ബിഹാരി വാജ്പേയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ സ്മരണാഞ്ജലി അർപ്പിക്കാനാണ് പൊക്രാനിൽ എത്തിയതെന്നും രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞു

ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉദകുമെന്ന് ഭൂട്ടാനിലെ ഇന്ത്യൻ അംബാസിഡർ ക്ക രുചിരാ കാംബോജ് ുട്ട് കരാറുകളിൽ ഒപ്പിടുമെന്നും മങ്കേദിച്ച് ഉൾപ്പെടെ പത്ത് പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും ീഅവർ പറഞ്ഞു

കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ്വർധൻ കേന്ദ്ര സഹമന്ത്രി അശ്വനി ചൌബേ തുടങ്ങിയ പ്രമുഖർരാഷ്ട്രപതിയെ അനുഗമിച്ചു

വൻനാശം വിതച്ച ദുരന്തം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവിച്ചത്

സി

ഐ

സി സി ഐ

സി സി ഐ യുട്ടൂ തിരഞ്ഞെടുപ്പിനായി താൽക്കാലികമായി തീയതി നിശ്ചയിച്ചിട്ടുളളത്

കേന്ദ്ര പദ്ധതിയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ ഒരു സംയുക്ത ഉന്നതതല സമിതി രൂപീകരിക്കുവാൻ കോടതി നിർദ്ദേശിച്ചു